രാവിലെ പത്തരയ്ക്ക് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് നേതൃത്വം നൽകുന്ന അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് വിധി പ്രഖ്യാപിക്കുന്നത്

ഇന്നലെ രാത്രി യിലാണ് അവധി ദിവസമാണെങ്കിലും വിധി പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന അറിയിപ്പ് സുപ്രീംകോടതി പുറപ്പെടുവിച്ചത് ഇന്നലെ ഉത്തർപ്രദേശ് ചീഫ് സെക്രട്ടറിയെയും പൊലീസ് മേധാവിയെയും ചീഫ് ജസ്റ്റിസ് ചേംബറിലേക്ക് വിളിച്ചുവരുത്തി ക്രമസമാധാന സാഹചരൃം വിലയിരുത്തിയിരുന്നു അയോധ്യ വിധിയുടെ സാഹചര്യത്തിൽ രാജ്യവ്യാപകമായി സുരക്ഷാസ ന്നാഹം ശക്തമാക്കി അയോധ്യയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ഉത്തർപ്ര ദേശിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും ജമ്മു കശ്മീരിലും കർണാടകയിലും മധ്യപ്രദേശിലും ഡൽഹിയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട് രുട്ടിട്ട്ട്ട്ട്ട്ട്ട അയോധ്യ വിധി ഒരുവിഭാഗത്തിന്റെയും ജയമോ പരാജയമോ ആയിരി ക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൃക്തമാക്കി വിധി പ്രഖ്യാപത്തിനു ശേഷം രാജ്യത്തെ സമാധാനവും സൌഹാർദ്ദവും നിലനിർത്താൻ എല്ലാ വിഭാഗം ജനങ്ങളും സഹകരിക്കണമെന്ന് അദ്ദേഹം ടിറ്ററിൽ അഭ്യർത്ഥിച്ചു സഹിഷ്ണുതയും ഐക്യവും മൈത്രിയും കാത്തുസൂക്ഷിക്കുന്ന മഹത്തായ ഇന്ത്യൻ പാരമ്പര്യം കൂടുതൽ ശക്തിപ്പെടുത്തുന്ന സ്മീപനം എല്ലാവരും സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കോടതിവിധി എന്തുതന്നെയാ യാലും ജനങ്ങൾ സംയമനം പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജ യൻ തിരുവനന്തപുരത്ത് അഭ്യർത്ഥിച്ചു മതനിരപേക്ഷതയും സമാധാനവും കാത്തുസൂക്ഷിക്കാൻ എല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ് വിധിയുടെ സാഹ ചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്താൻ പൊലീസിന് നിർദ്ദേശം നൽകിയി ട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എല്ലാ ജില്ലകളിലും കർശന സുരക്ഷ ഉറ പ്പുവരുത്താൻ സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ജില്ലാ പൊലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി സാമൂഹ്യ മാധ്യമങ്ങളിലെ എല്ലാ തരം അക്കൌണ്ടുകളും പോസ്റ്റുകളും നിരീക്ഷണത്തിലായിരിക്കും മതസ്പർധ വളർത്തുന്ന സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം നടപടിയെടുക്കും റെയിൽവെ സ്റ്റേഷൻ ബസ്സ്റ്റാന്റ് വിമാനത്താ വളം എന്നിവിടങ്ങളിൽ പരിശോധന ശക്തമാക്കാനും നിർദ്ദേശം നൽകിയി ട്ടുണ്ട് വാഹന പരിശോധനയും കർശനമാക്കും കാസർകോട് ജില്ലയിലെ അഞ്ച് പൊലീസ് സ്റ്റേഷൻ പരിധികളിൽ ജില്ലാ കലക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കാസർഗോഡ് കുമ്പള മഞ്ചേശ്വരം ഹോസ്ദുർഗ് ചന്ദേര പൊലീസ് സ്റ്റേഷൻ പരിധികളിലാണ് നിരോധനാജ്ഞ രദ്ദേഷ്ടങ അയോധ്യ ഭൂമി കേസിൽ സുപ്രീംകോടതി വിധി വരുന്ന സാഹചര്യ ത്തിൽ സമാധാനവും സൌഹാർദ്ദവും നിലനിർത്താൻ എല്ലാവരും പ്രതിജ്ഞാ ബദ്ധരാണെന്ന് മുസ്തിം സംഘടനാ നേതാക്കൾ കോഴിക്കോട്ട് പ്രസ്താവന യിൽ പറഞ്ഞു കോടതിവിധിയെ സംയമനത്തോടെ കാണണമെന്ന് പാണ ക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ടി പി അബ്ദുള്ളക്കോയ മദനി ഡോക്ടർ പി

പഞ്ചാബ് ഗുരുദാ സ്പൂരിലെ ദേരാബാബാ നാനാക്കിൽ ഇന്ത്യൻ ഭാഗത്തെ ചെക്പോസ്റ്റ് പ്രധാ നമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും അവിടെനിന്ന് ഗുരുനാനാക്ക് ദേവിന്റെ അന്ത്യവിശ്രമസ്ഥലമായ കർത്താർപൂർ സാഹിബിലേക്ക് നാലര കിലോമീറ്റർ ദൂരത്തിലാണ് ഇടനാഴി നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് പോവുന്ന ആദൃ തീർത്ഥാടക സംഘത്തിന്റെ ഫ്ളാഗ്ഓഫും പ്രധാനമന്ത്രി നിർവഹിക്കും ചടങ്ങിന് മുമ്പ് സുൽത്താൻപൂർ ലോധിയിലെ ഗുരുദാര പ്രധാ നമന്ത്രി സന്ദർശിക്കും മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് തുടങ്ങിയവർ ആദ്യ തീർത്ഥാടക സംഘത്തിലുണ്ട് രദ്ദേഷ്ടങ കോൺഗ്രസ് അധ്യക്ഷ സോണിയഗാന്ധിയുടെയും രാഹുൽഗാന്ധി പ്രിയങ്ക എന്നിവരുടെയും എസ്

ജി സുരക്ഷ കേന്ദ്രം പിൻവലിച്ചു ഇതി നുപകരം സി ആർ

എഫിന്റെ ഇസെഡ് പ്ലസ് സുരക്ഷ മൂന്നുപേർക്കും നൽകിയിട്ടുണ്ട്

ജി സുരക്ഷ ഏർപ്പെടുത്തിയത്

ജെ പി ഗവൺമെന്റിന്റെ പ്രതികാര നടപടിയാണ് എസ്

ജി സുരക്ഷ പിൻവലിച്ച നടപടിയെന്ന് കോൺഗ്രസ് വിലയിരുത്തി ദർവ്വെടു ബംഗാൾ ഉൾക്കടലിൽ രൂപംകൊണ്ട ബുൾബുൾ ചുഴലിക്കാറ്റ് കരു ത്താർജ്ജിച്ച് ഇന്ന് വടക്കൻ തീരമേഖലയിലേക്ക് നീങ്ങുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കൊൽക്കത്തയിൽ അറിയിച്ചു

ഇന്ന് രാത്രി ഒൻപതോടെ പശ്ചിംബംഗാളിലെ സാഗർ ദ്വീപിനും ബംഗ്ലാദേശിലെ കെപ്വാരയ്ക്കും ഇടക്ക് കാറ്റുവീശുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം ബുൾബുൾ ചുഴലിക്കാറ്റിന്റെ സ്വാധീനം മൂലം ഇന്നും നാളെയും കേരളത്തിൽ ശക്തമായ മഴക്ക് സാധൃതയുണ്ടെന്ന് കാലാ വസ്ഥാ വകുപ്പ് അറിയിച്ചു കോഴിക്കോട് മലപ്പുറം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്

അമൃത് പദ്ധതിയിൽ കൊല്ലം കോർപ്പറേ ഷൻ പൂർത്തീകരിച്ച ടി എം വർഗീസ് സ്മാരക പാർക്ക് ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു മന്ത്രി ചരിത്ര മ്യൂസിയം ലൈബ്രറി നവീകരണം മാനവീയം പ്രൊജക്ട് എന്നിവ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു രദേഷ്ടെടു അഖിലകേരളാ വായനാ മത്സരം രാവിലെ മലമ്പുഴ ലളിതകലാ അക്കാ ദമി ആർട്ട് ഗ്യാലറിയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും ജില്ലകളിൽ നിന്ന് എത്തുന്ന വിദ്യാർത്ഥികൾക്കായി എഴുത്ത് വാചാ പരീ ക്ഷകളും പഠനയാത്രയും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് രദേഷ്ടെടു കൊച്ചിയിൽ ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒ ഡീഷ എഫ് സി മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു നാല് കളി കൾ വീതം പൂർത്തിയായപ്പോൾ ഇരുടീമുകൾക്കും ല്പീഗിൽ നാല് പോയിന്റ് വീതമുണ്ട് ഇന്ന് എ

കെ ജംഷഡ്പൂരിനെ നേരിടും ദർശ്ശക്കുള്ള കോഴിക്കോട്ട് സന്തോഷ്ട്രോഫി ദക്ഷിണമേഖലാ യോഗ്യതാ മത്സര ത്തിൽ കേരളം ഇന്ന് തമിഴ്നാടിനെ നേരിടും വൈകീട്ട് മൂന്നരയ്ക്കാണ് മത്സ രം നിലവിൽ ഓരോ മത്സരം ജയിച്ച ഇരുടീമുകൾക്കും മൂന്ന് പോയിന്റ് വീതമുണ്ട് ഗോൾ ശരാശരിയിൽ മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിന് മത്സരം സമനിലയിലായാലും ഫൈനൽ റൌണ്ടിൽ കളിക്കാം ഇന്നലെ തെലങ്കാനയെ തോൽപ്പിച്ച് കർണാടക യോഗൃത നേടിയിരുന്നു

ഇന്ന് തമിഴ്നാട് രാജസ്ഥാനെയും മണിപ്പൂർ ത്രിപുരയെയും ഉത്തർപ്രദേശ് വിദർഭയെയും നേരിടും

സംസ്ഥാനത്തെ ജലോ ത്സവങ്ങളെ കോർത്തിണക്കി തയ്യാറാക്കിയ ചാമ്പൃൻസ് ബോട്ട് ലീഗിന്റെ പ ത്താം മത്സരം കൂടിയാണിത് ഐ

എൽ മാതൃകയിൽ സംഘടിപ്പിക്കുന്ന ലീഗിന്റെ ഒമ്പത് മത്സരങ്ങൾ പിന്നിടുമ്പോൾ നടുഭാഗം ചുണ്ടൻ ഒന്നാം സ്ഥാ നത്താണ്

നവീകരിച്ച വി ഗംഗാധരൻ പാർക്കും മന്ത്രി ഉദ്ഘാടനം ചെയ്തു

പി രാമകൃഷ്ണൻ രാവിലെ ഉദ്ഘാടനം ചെയ്യും കൂട രഞ്ഞി സർവീസ് സഹകരണ ബാങ്ക് കെട്ടിടവും ഈങ്ങാപ്പുഴ ബസ്സ്റ്റാന്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് സമുച്ചയവും അദ്ദേഹം നാടിന് സമർപ്പിക്കും ഉച്ചക ഴിഞ്ഞ് കൈനാട്ടി ലൈഫ് ഭവന പദ്ധതിയുടെ താക്കോൽദാന ചടങ്ങിലും മന്ത്രി പങ്കെടുക്കും

ചാലക്കുടി സബ് ഡിവിഷനാണ് രണ്ടാംസ്ഥാനം

അറു പതോളം ടീമുകൾ പങ്കെടുക്കുന്ന ചാമ്പ്യൻഷിപ്പ് വൈകീട്ട് മന്ത്രി കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്യും

സ്കൂൾ വിഭാഗത്തിൽ പൂഞ്ഞാർ എസ് എം

എസ് സി നിയമനങ്ങളിൽ അംഗപരിമിതർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഗ്രേസ് മാർക്ക് നിർത്തലാക്കിയ നടപടിയിൽ കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് പ്രതിഷേധിച്ചു ഇത് പുനസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഫെഡ റേഷൻ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി

മറ്റ് വാഹനങ്ങളും യാത്ര പരമാവധി ഒഴിവാക്കണ മെന്ന് ജില്ലാ കലക്ടർ അഭ്യർത്ഥിച്ചു

അടുത്ത ബുധനാഴ്ചയാണ് വൈക്കത്തഷ്ടമി ദർവ്വട്ടെഴ ഇടുക്കി ശാന്തൻപാറയിൽ റിസോർട്ട് ജീവനക്കാരൻ റിജോഷിനെ കൊല പ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവത്തോട് ബന്ധപ്പെട്ട് റിസോർട്ട് മാനേജരുടെ സഹോദരൻ ഫഹദിനെ അറസ്റ്റ് ചെയ്തു കൊലപാതകത്തിനുശേഷം തെളിവ് നശിപ്പിക്കാനും അമ്പേഷണം വഴിതെറ്റിക്കാനും ഇയാൾ ശ്രമിച്ചെന്ന് ആരോ പിച്ചാണ് അറസ്റ്റ്

ദർവ്വെടെ വിവരാവകാശ അപേക്ഷകൾക്ക് മറുപടി നൽകുന്നതിൽ ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷ ണർ ആവശ്യപ്പെട്ടു മുഖ്യ കമ്മീഷണർ വിൻസൻ എം പോൾ കമ്മീഷണർ കെ വി സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൊല്ലത്ത് സംഘടിപ്പിച്ച സിറ്റിംഗിലാണ് കമ്മീഷന്റെ നിർദ്ദേശം

നൂറോളം സ്കൂളുകളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും സ്കൂൾ പരിസരങ്ങളിൽ കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങളും നടത്തി

കെ രാഘവൻ എം പിക്ക് റെയിൽവെ അധികൃതർ ഉറപ്പുനൽകി